എഫിന്റെ പ്രകടനപത്രിക പുറത്തിറക്കി

എഫ് പ്രകടനപത്രിക നാളെ

പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവെയ്പ്പ് നൽകിയതായി കേന്ദ്ര ആരോഗൃമന്ത്രാലയം

സി സി ഐ പ്രഖ്യാപിച്ചു

രാജ്യമെമ്പാടും കാർഷിക വിഭവങ്ങൾ കൊണ്ടുപോകാൻ കിസാൻ റെയിൽ പ്രയോജനപ്പെടുന്നതായി റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി കർഷകരെ ലക്ഷ്യമിട്ടാണ് കിസാൻ റെയിൽ ആരംഭിച്ചത്

വ്യവസായവും ആഭ്യന്തര വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു കർണാടകയും ഡൽഹിയുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ

ഡി

എം സെക്രട്ടറി എ

പ്രവാസി പുനരധിവാസത്തിന് പ്രത്യേക പദ്ധതി തീരദേശ വികസനത്തിന് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഒരു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപവരെ വായ്പ്പാ സഹായം തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലൂൺട്

ഡി എഫ് പ്രകടന പത്രിക നാളെ പ്രകാശനം ചെയ്യുമെന്ന് കൺവീനർ എം

എഫ് പ്രതിബദ്ധതയോടെ യാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദറായ് കൂടുതൽ വിവരങ്ങളുമായി ആതിര ബാലൻ

ആർ

ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ മാവോവാദം ശക്തി പ്രാപിച്ച പ്രദേശങ്ങളിൽ സമാധാനവും വികസനവും കൊണ്ട് വരാൻ സി

എഫിന്റെ പ്രവർത്തനം സഹായകരമാകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ സൂരക്ഷ ഉറപ്പാക്കുന്നതിൽ സി

നക്സലുകളെ നേരിടാൻ നിർണായക പങ്കാണ് സി

എഫ് വഹിക്കുന്നതെന്ന് ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രൂ ജന്തോ യുഎസ് ബന്ധം കൂടുതൽ ദൃഡമാക്കാനും പ്രതിരോദ്ധ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലുള്ള താക്കാനും അദ്ദേഹം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായും മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും ഇന്തോ പസഫിക് മേഖലയിൽ കൂടുതൽ സഹകരണം സംബന്ധിച്ചും ചർച്ച ഉണ്ടാകും

കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ്

അഹമ്മദാബാദ് സൂററ്റ് വഡോദര രാജ്ക്കോട്ട് ജാംനഗർ ജൂനഗഢ് ഭവ്നഗർ ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് സ്കൂൾ ക്സാസ്സുകൾ താത്ക്കാലികമായി നിർത്തിവയ്ക്കുന്നത് അതേ സമയം ഓൺലൈൻ ക്ലാസ്സുകൾ തുടരും

പരിശീലനം നടത്തുന്ന മുതിർന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അടിയന്തിര സാഹചരൃം കണക്കിലെടുത്ത് കളക്ടർമാരുടെയോ മുൻസിപ്പൽ കമ്മീഷണർമാരുടെയോ മുന്നിൽ സേവനത്തിനായി റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് സൂററ്റ് അഹമ്മദാബാദ് വഡോദര രാജ്കോട്ട് എന്നീ നഗരങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായത്

പ്ര ന്യൂസ് ഡെസ്ക് ആകാശവാണി

വാക്സിൻ കൈമാറ്റം സുഗമമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌറീഷസ് പ്രധാനമന്ത്രി പ്രവിന്ത് ജുഗ്നൌദ് മൌറീഷ്യസിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കെ

ഇക്കഴിഞ്ഞ ബുധനാഴ്ച തിരുപ്പൂർ ്ധാരാപുരം ചെന്നൈ എന്നിവിടങ്ങളിൽ എട്ടിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ലാഭം കൃത്രിമമായി കുറച്ച് കാട്ടിയ ബിസിനസ് സ്ഥാപനത്തെ പിടികൂടി

ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനി ചൌബെയാണ് ഇക്കാര്യം പറഞ്ഞത്